തീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം

എൽ ക്രിക്കറ്റിൽ ഇന്ന് ഹൈദരാബാദ് സൺറൈസേഴ്സ് പഞ്ചാബ് കിംങ്ങ്സ് ഇലവനെ നേരിടും

മഹാരാഷ്ട്രയിലെ സീറ്റുകൾ രാജസ്ഥാനിലെയും ഉത്തർപ്രദേശിലെയും സീറ്റുകൾ പശ്ചിമബംഗാളിലെ എട്ട് മധ്യപ്രദേശിലെയും ഒഡ്ീഷ്യിലെയും ആറ് ബീഹാറിലെ അഞ്ച് ഛാർഖണ്ഡിലെ മൂന്ന് സീറ്റുകൾ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് എസ് എസ് അലുവാലിയ ബാബുൽ സുപ്രിയോ ഗജേന്ദ്രസിംഗ് ശിഖാവത് പി

ചൌധരി സുഭാഷ് ഭാംറേ സുദർശൻ ഭഗത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് ചലച്ചിത്ര താരം ഊർമ്മിള മറ്റോണ്ട്ക്കർ ബിജെപി ബീഹാർ ഘടകം തലവൻ നിത്യാനന്ദ് റോയ് ആർ

പി തലവൻ ഉപേന്ദ്ര കുശ്വാഹ തുടങ്ങിയ പ്രമുഖർ നാലാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു

കാശ്മീരിലെ അനന്ത്നാഗിൽ ജനങ്ങളോട് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ ആഹാനം ചെയ്തു കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലേയും റെക്കോർഡുകൾ തകർക്കുന്ന തരത്തിൽ അനന്ത്നാഗിൽ പോളിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

വിശദാംശങ്ങളുമായി പ്രിയം ഹോൾഡ് വോയിസ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നത് അണികൾക്ക് ആവേശം പകരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും ഇന്ന് മൂന്ന് തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും ഝാർഖണ്ഡിലെ ഗിരിധലിൽ തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി തുടർന്ന് പശ്ചിമബംഗാളിലെ ശ്രീരാംപൂർ ബരാക്പൂർ എന്നിവിടങ്ങളിലെ റാലിയെ അഭിസംബോധന ചെയ്യും

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ഇന്ന് ഉത്തർപ്രദേശിലെ ചിത്രകൂട് പ്രതാപ്ഗർ ജോൺപൂർ പ്രയാഗ്രാജ് എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി രാജസ്ഥാനിലെ ദാൽപൂർ ചുരൂ ജയ്പൂർ എന്നിവിടങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തും

ദിവസത്തെ ച്ചുകോടിക്കിടെ അംഗരാജ്യങ്ങുടെ മുന്നു പ്രതിനിധികളുമായി രാജ്യിരക്ഷാമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നതിന് പരസ്പര സഹകരണത്തിന്റെ സാധ്യതകളും ചർച്ച ചെയ്യും ഭീകരവാദം ചെറുക്കുന്നതിന് മേഖലാതലത്തിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ചർച്ചകൾക്ക് ഇന്ത്യ മുൻകൈയ്യെടുക്കും

ശ്രീനഗറിനു സമീപം ചൻ പോറയിൽ വെള്ളിയാഴ്ച ആയിരുന്നു ആക്രമണം ബുദ്ഗാമിലെ വത്തോറ മേഖലയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചതായും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തിയതായും ശ്രീനഗർ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഹസീദ് മുഗൾ അറിയിച്ചു കൂടുതൽപേരെ ചോദ്യം ചെയ്തു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്ത് സുരക്ഷാ സേന തിരച്ചിൽ തുടരുന്നു

ആക്രണമത്തിൽ പരിക്കേറ്റ പോലീസുകാരൻ ശ്രീനഗറിൽ ചികിത്സയിലാണ്

കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ രാവിലെയോടെ തീവ്രത കൈവരിക്കുന്ന ചുഴലിക്കാറ്റ് ഗതിമറി ബംഗ്ലാദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതായാണ് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഫോനി ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും മൂന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകും തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിൽ ഇന്നുമുതൽ രണ്ട് ദിവസത്തേക്ക് മഴയുണ്ടാകാൻ സാധൃതയുണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഒഡീഷ തീരത്ത് ശക്തമായ മഴയണ്ടാകും ന്യൂനമർദത്തിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ഇന്നും നാളെയും കാറ്റ് വീശാൻ സാധ്യതയുണ്ട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ആഴക്കടലിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്നവർ തിരിച്ചെത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്

അടിയന്തരഘട്ടത്തെ നേരിടാനുള്ള എല്ലാ ്സജ്ജീകരണങ്ങളും ഉറപ്പ് വരുത്തണമെന്നും ജനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും യഥാസമയം എത്തിക്കണള്മുന്നും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു ഫോന്ദി ബ്രാധിക്കാനിടയുള്ള സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളുമായി സ്റ്മ്പർക്കം പുലർത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

സുരക്ഷാനടപടികളുടെ ഭാഗമായാണ് തീരുമാനമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രി പാല സിരിസേന വ്യക്തമാക്കി

ദേശസുരക്ഷ പരിഗണിച്ച് മുഖം മറയ്ക്കൽ ഒഴിവാക്കണമെന്നും ആളുകളെ തിരിച്ചറിയാനുള്ള സാധ്യത സുരക്ഷാനടപടികളുടെ ഭാഗമാണെന്നും സിരിസേന അറിയിച്ചു സ്ത്രീകൾ മുഖം മറയ്ക്കേണ്ടതില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രാദേശിക മതനേതാക്കൾ നിർദ്ദേശിച്ചിരുന്നു

ഗുജറാത്തിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് സൃശാഷ്ട്ര കച്ച് മേഖലയിലാണ് കൂടുതൽ ചൂട്

മഹാരാഷ്ട്രയിലെ മറ്റത്ത്പാഡ മേഖലയിൽ കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി

ഇന്നും നാളെയും ഇതേ സ്ഥിതി തുടരുമെന്നും കാലാവസ്ഥാകേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു

എൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മൽസരത്തിൽ ഹൈദരാബാദ് സൺറൈസേഴ്സ് പഞ്ചാബ് കിംങ്ങ്സ് ഇലവനെ നേരിടും ഇന്നലെ നടന്ന മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെയും ഡൽഹി ക്യാപ്പിറ്റൽസ് ബംഗളുരു റോയൽ ചലഞ്ചേഴ്സിനെയും പരാജയപ്പെടുത്തിയിരുന്നു

ഈമാസം ദോഹയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഹിമ പിൻമാറിയിരുന്നു

പൂവമ്മ വി

കഞ്ഞുമുഹമ്മദ് ജിത്തുബേബി അലക്സ് ആന്റണി എന്നിവരാണ് മൽസരിക്കുന്നത്

സുമാത്രാ ദ്വീപിലാണ് ഏറ്റവുമധികം നാശനഷ്ടമുണ്ടായത് പേരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറ്റിപാർപ്പിച്ചു ബങ്കുല പ്രവിശ്യയിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും പാലങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുകയും ചെയ്തു പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടുപോയതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി വൃക്തമായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു